ഇന്റർനെറ്റ് സേവനങ്ങൾ മൌലിക അവകാശമാണെന്ന് സുപ്രീം കോടതി

ജവഹർലാൽ നെഹ്റു സർപ്പകലാശാലയിലെ സംഘർഷം കുറ്റക്കാരെന്ന് സംശയിക്കുന്ന് ഒമ്പത് പേരെ തിരിച്ചറിഞ്ഞതായി ഡ്ൽഹി പൊലീസ്

മരടിൽ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന നടപടി ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം സജ്ജീകരണങ്ങൾ പൂർത്തിയായി

നിരോധനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഒരാഴ്ചയ്ക്കകം പുനഃപരിശോധിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ പ്രസിദ്ധപ്പെടുത്താനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും കോടതി ഉത്തരവിട്ടു മാധ്യമ സ്വാതന്ത്ര്യം വിലമതിക്കാനാകാത്തതും പരിശുദ്ധവുമായ അവകാശമാണെന്ന് ബഞ്ച് നിരീക്ഷിച്ചു

ഹർജികളിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി

സംഭവത്തിൽ വിശദീകരണം നൽകാൻ ഇവരോട് ആവശ്യപ്പെട്ടതായി ഡൽഹി പൊലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജോയ് ടിർക്കി അറിയിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ രജിസ്ട്രേഷൻ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരിൽ ജെ എൻ

വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷും ഉൾപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചു

സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്

ഉന്നതവിദ്യാഭ്യാസ സെക്രട്ടറി അമിത്ഖാരേയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം വിദ്യാർത്ഥികളുമെന്ന് ഡൽഹി പൊലീസ് വെളിപ്പെടുത്ത്ലിലൂടെ വ്യക്തമായതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ച് ക്യാമ്പസുകളിലേക്ക് തിരികെ പോകാനും ക്സാസ് തടയരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു

വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയ്സ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ നവീകരിച്ച കൊൽക്കത്തയിലെ പൈതൃക മന്ദിരങ്ങളിൽ ഓൾഡ് കറൻസി മന്ദിരാ ബെൽവെദേർ ഹൌസ് മെറ്റ്കാഫ് ഹൌസ് വിക്ടോറിയ സ്മാരക ഹാൾ എന്നിവ നാളെ പ്രധാനമന്ത്രി രാഷ്ട്രടത്തിന് സമർപ്പിക്കും

ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും കപ്പലുകൾക്ക് കാലതാമസം കൂടാതെ തുറമുഖം വിടുന്നതിനും സഹായിക്കുന്ന ഉയർന്ന നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങളും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട്ടിലെ തിരുച്ചിറപള്ളിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്പൂർണ സാക്ഷരത യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം മറ്റു മേഖലയിലെ സഹകരണം കൂടി ആവശ്യമാണ് വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം ആറ് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്നും സ്വകാര്യ നിക്ഷേപകർ ഈ മേഖലയിൽ കടന്നുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഈ കാലയളവിൽ മേഖലയിൽ അനിഷ്ട സ്റ്റ്ട്വിങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നകാര്യം ഉന്നതതല സംഘം വിദ്ദേശ്സ്ഘത്തെ അറിയിച്ചു

ന്യൂഡൽഹിയിൽ നിതി ആയോഗ് സംഘടിപ്പിച്ച ഇന്ത്യയുടെ ഊർജ്ജ നയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിശദാംശങ്ങളുമായി കൃഷ്ണ വോയ്സ് വടക്ക് കിഴക്കൻ വാതക ഗ്രിഡ് പദ്ധതി വികസിപ്പിക്കാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു കൽക്കരി ഖനി മേഖലയെ വാണിജ്യ സൌഹൃദമാക്കാൻ കൂടുതൽ ഉദാരവത്ക്കരണ നടപടികൾ എടുക്കുമെന്ന് കൽക്കരി വകുപ്പ് മന്ത്രി പ്രഹ്ഗാദ് ജോഷി യോഗത്തിൽ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശ്വാണ്ി

സുപ്രീംകോടതി വിധിയെ തുടർന്നാണ് നടപടി

ഫ്ളാറ്റ് പൊളിക്കുന്ന പ്രദേശങ്ങളിൽ നാളെ രാവിലെ എട്ടുമുതൽ വൈകിട്ട് നാലുവരെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മിഷണർ വിജയ് സാക്കറെ അറിയിച്ചു

സുരക്ഷാക്രമീകരണങ്ങൾ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു

സ്വർണ വില കുറഞ്ഞു

പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിക്കുകയും രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു